ഗാന്ധിജിയുടെ സ്ഥപ്ന ങ്ങൾ സാക്ഷാത്കരിക്കാൻ കഠിന പ്രയത്ത്നം നടത്തു മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീർ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ കർശനമാക്കി

മരടിലെ വിവാദ് ഫ്ളാറ്റുകളിൽനിന്ന് ഒഴിയാൻ ഉടമ കൾക്ക് സമയം നീട്ടിനൽകില്ലെന്ന് നഗരസഭ തൃശൂരിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ദക്ഷിണാഫ്രിക്കക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം

രാഷ്ട്ര പതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായി ഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി തുടങ്ങി പ്രമുഖർ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി ഗാന്ധിജി മാന വികതയ്ക്ക് നൽകിയ മഹദ് സംഭാവനകൾക്ക് നന്ദി അർപ്പി ക്കുന്നതായും ഗാന്ധിജിയുടെ സൃപ്നങ്ങൾ സാക്ഷാത്കരി ക്കാനും മികച്ചൊരു ലോകം സൃഷ്ടിക്കാനും കഠിനശ്രമം നട ത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ വൈകിട്ട് പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി അനുസ്മരണ ചടങ്ങുകൾക്ക് ദേശീയതലത്തിൽ നേതൃത്വം നൽകും ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മൂലൃങ്ങൾ നൂറ്റാണ്ട് പിന്നിടു മ്പോഴും ഒളിമങ്ങാതെ തിളങ്ങി നിൽക്കുകയാണെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറ ഞ്ഞു ഗാന്ധി ഘാതകർ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇത്തവ ണത്തെ ഗാന്ധിജയന്തി ദിനാഘോഷങ്ങൾക്ക് ഏറെ പ്രസ ക്തിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടിച്ചമർത്തലിനെയും വർഗ്ഗീയതയെയും വിദേഷ ത്തെയും പരാജയപ്പെടുത്താനുള്ള ഒരേയൊരു മാർഗ്ഗം സഹജീവി സ്നേഹവും അഹിംസയുമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈ സത്യം ലോകത്ത് പകർന്ന് നൽകിയ മഹദ് വ്യക്തിയാണ് ഗാന്ധിജിയെന്ന് ജയന്തി ദിന ത്തിൽ രാഷ്ട്രപിതാവിന് ആദരവ് പ്രകടിപ്പിച്ച് രാഹുൽ പറ ഞ്ഞു സംസ്ഥാനത്ത് ഗാന്ധിജയന്തി വാരാചരണത്തിന് തുടക്ക മായി തിരുവനന്തപുരം ഗാന്ധിപാർക്കിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന സെമിനാർ ശുചിത്വ ബോധവത്കരണം എന്നിവ സംഘടിപ്പിച്ചു ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദിനാചരണത്തിന് തുടക്കം കുറി ച്ചു

തിരുവനന്തപുരത്തും എറ ണാകുളത്തും കോഴിക്കോട്ടും മുതിർന്ന നേതാക്കളുടെ നേതൃ ത്വത്തിൽ പദയാത്ര തുടങ്ങി

തലസ്ഥാന ദ്വീപായ കവരത്തി സെക്രട്ടറിയേറ്റിൽ നടന്ന ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ആർ

ഗാന്ധി സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടുള്ള പഥയാത്രയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ നേതൃത്വം നൽകി

ജെ

കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു കണ്ണൂരിൽ നടന്ന പരിപാടി മാരാർജി ഭവനിൽ ബി ജെ

ജില്ലാ പ്രസിഡന്റ് പി സത്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തിവാരാഘോഷം കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ഫോട്ടോ പ്രദർശനവും നടക്കുന്നുണ്ട് കശ്മീർ അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഭീക രാക്രമണ സാധൃത കണക്കിലെടുത്ത് സുരക്ഷ കർശനമാ ക്കി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് സൈനിക താവളങ്ങളിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെത്തുടർന്നാണ് കശ്മീരിലെയും പഞ്ചാബി ലെയും സൈനിക കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയത് ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തോളം പേര ടങ്ങിയ ചാവേർ സംഘം വ്യോമസേനാ താവളങ്ങൾ ലക്ഷ്യ മാക്കി നീങ്ങിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര രഹസ്യാന്ധേഷണ വിഭാ ഗത്തിന് ലഭിച്ച വിവരമെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മ വാർഷികദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തെ സ്മരിക്കു ന്നു

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി എന്നിവർ സമാധി സ്ഥലമായ വിജയ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി മരടിലെ ഫ്ളാറ്റിൽനിന്ന് ഒഴിയാൻ ഉടമകൾക്ക് സമയം നീട്ടി നൽകില്ലെന്ന് നഗരസഭ അറിയിച്ചു

താൽക്കാലികമായി പുനഃസ്ഥാ പിച്ച വെള്ളവും വൈദ്യുതിയും നാളെ വിച്ഛേദിക്കുമെന്ന് മരട് നഗരസഭാ സെക്രട്ടറി വൃക്തമാക്കി പുനരധിവാസം ആവ ശ്യപ്പെട്ടവർക്ക് നൽകിയതായും സെക്രട്ടറി പറഞ്ഞു തൃശൂരിൽ എക്സൈസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വൈദ്യ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയശേഷം നടപടിയെടുക്കുമെന്ന് മന്ത്രി ടി

യുവാവിന് മർദ്ദനമേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു പാലാ ഉപതെരഞ്ഞെടുപ്പുഫല്ം സി

എം ബി ജെ പി വോട്ട് കച്ചവടത്തിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറ്ഞ്ഞു പാലയിലെ ഫലം യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നില്ലെന്ന് അദ്ദേഹം തിരുവ നന്തപുരത്ത് പറഞ്ഞു കോന്നിയിലും വട്ടിയൂർക്കാവിലും ഇരുപാർട്ടികളും തമ്മിൽ വോട്ട് കച്ചവടമുണ്ടെന്നും ചെന്നി ത്തല ആരോപിച്ചു

പി വോട്ട് കച്ചവടത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് സി

എം ബി ജെ പി വോട്ടു കച്ച വടമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപണമുന്നയിക്കു ന്നതെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സംസ്ഥാനത്ത് കോൺഗ്രസ് ആർ എസ്

ശബരി മല കർമ്മസമിതി വഴിയാണ് ഈ ബന്ധമെന്നും കോടിയേരി ഡൽഹിയിൽ ആരോപിച്ചു വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടമെന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എസ്

എഫിലെ പ്രശ്നങ്ങളിൽനിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനാണ് ഇത്തരത്തിൽ നുണപ്രചാരണം നടത്തുന്നത്തെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ ഗാന്ധി എം

മറ്റന്നാൾ സുൽത്താൻ ബത്തേരിയിലെത്തുന്ന അദ്ദേഹം ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിനെതിരെ നടക്കുന്ന നിരാഹാര സമരത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് കല്പറ്റ കലക്ടേറ്റിൽ നടക്കുന്ന യോഗത്തിൽ രാഹുൽ സംബന്ധിക്കും

കോഴിക്കോട് ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ജെ ഡി റ്റി ഇസ്ലാം സ്പെഷ്യൽ സ്കൂളിൽ തുടങ്ങി ജില്ലാ കലക്ടർ എസ്

വൈകിട്ട് സി

കുഞ്ഞു മുഹമ്മദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രമുഖ പ്രവാസി വ്യവ സായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ സി കെ മേനോന്റെ സംസ്കാരം വൈകീട്ട് ആറിന് തൃശൂർ പാറമേ ക്കാവ് ശ്മശാനത്തിൽ നടക്കും

വയനാടൻ കാപ്പിയുടെ പ്രചരണത്തിന് ഗവൺമെന്റ് സ്വകാര്യ സഹകരണ പൃങ്കാളിത്തതോടെ കൂട്ടായ ശ്രമം വേ ണമെന്ന് കൽപ്പറ്റയിൽ നടന്ന പ്രഥമ കോഫി അസംബ്ലി അഭി പ്രായപ്പെട്ടു

കെ് ശശീന്ദ്രൻ എം

അസംബ്ലി ഉദ്ഘാടനം ചെയ്തു ദേശീയം പുകയില നിയന്ത്രണ പരിപാടിയുടെ ഭാഗമാ യി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുക യില മുക്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ക്യാ മ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനം

ഇന്നലെ പാലം ഭാഗികമായി തകർന്ന് അപകടം ഉണ്ടായ പശ്ചാത്തലത്തിൽ കലക്ടറുടെ ഉത്തരവിനെത്തുടർന്നാണ് പാലം പൊളിച്ച് നീക്കിയത്

കലക്ടറേ റ്റിലെ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെയാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കലക്ടറേറ്റിൽ സുരക്ഷാ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പൊലീസുകാർ വിവരം അറിയിച്ചതിനെത്തുടർന്ന് അഗ്നി സുരക്ഷാ സേന എത്തി തീയ ണച്ചു

പ്രാദേശിക ഉല്പന്നങ്ങളുടെ പ്രചരണം പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവയാണ് മേളയുടെ ലക്ഷ്യമെന്ന് സുഭിക്ഷ ചെയർമാൻ കെ കുഞ്ഞമ്മദ് പറഞ്ഞു മലപ്പുറം കൊളത്തൂരിൽ പൃഴയസാധനങ്ങൾ കത്തിക്കു ന്നതിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പരിക്കേറ്റു കൊളത്തൂർ അമ്പലപ്പടി നരസിംഹമൂർത്തി ക്ഷേത്ര ഓഫീസ് റൂമിലെ പഴയസാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ യാണ് സംഭവം ക്ഷേത്രം ഭാരവാഹി കടന്നമറ്റ രാമദാസിനാ ണ് പൊള്ളലേറ്റത്